ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ

സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡിച്ചുൺ വേണ്ടെന്ന് സർവ്വകക്ഷിയോഗത്തിൽ തീരുമാന്ത്

ഏർപ്പെടുത്തി

ഏർപ്പെടുത്താൻ മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം

സൌജനൃ കോവിഡ് വാക്സിൻ നൽകുമെന്ന് ഡൽഹി ഒഡീഷ സർക്കാരുകൾ

എന്നാൽ രാജ്യത്ത് കോവിഡ് രോഗബാധ രൂക്ഷമായി തന്നെ തുടരുകയാണ്

ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജ്യ് ഭല്ല സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു ഓക്സിജൻ ഉത്പാദനം ് എല്ലാ നിർമാണ കേന്ദ്രങ്ങളും പരമാവധി യാക്കണമെന്നും ഇത് മെഡിക്കൽ ആവശ്യങ്ങൾക്കായി സർക്കാരിന് നൽകണമെന്നും നിർദ്ദേശമുണ്ട്

അതേസമയം രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്

യാത്രാദൈർഘ്യം കുറയ്ക്കുന്ന വിധത്തിൽ ഓക്സിജൻ കൈമാറ്റ സംവിധാനം ഒരുക്കാനും കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചു

തീവ്രവ്യാപനമുണ്ടായ മേഖ്വല്ക്ളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാനാണ് കേന്ദ്ര ആഭൃന്തര സെക്രട്ടറി നിർദ്ദേശം നൽകിയത്

സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ വേണ്ടെന്ന് ഇന്ന് ചേർന്ന സർവ്വകക്ഷിയോഗത്തിൽ ധാരണയായതായും മുഖ്യമന്ത്രി അറിയിച്ചു എന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരണമെന്ന കാര്യത്തിൽ ഏകാഭിപ്രായമാണ് ഉണ്ടായത്

തീയേറ്റർ ഷോപ്പിംഗ് മാൾ ജിം സ്ട്രിമ്മിറ്റ് പൂൾ സ്പോട്സ് കോംപ്ലക്സ് പാർക്ക് ബാർ വിദ്ദേശ് മദ്യ വില്പന ശാലകൾ ക്ലബ്കൾ എന്നിവയുടെ പ്രവർത്തന്ം തൽക്കാലം നിർത്തി വയ്ക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച്ച അ്വധി രാത്രി കർഫ്യൂ തുടരും

ആൾക്കൂട്ടമുണ്ടാകുന്ന എല്ലാവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികളും ഒഴിവാക്കണം

സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി നൽകിയിട്ടുണ്ട്

സി

കോവിഡ് മഹാമാരിയെ നേരിടാൻ സായുധസേന നടത്തുന്ന പ്രവർത്തന ങ്ങളും തയ്യാറെടുപ്പുകളും ഇരുവരും അവലോകനം ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ വിരമിച്ച സായുധ സേനയിലെ മെഡിക്കൽ ഓഫീസർമാരെ സമീപപ്രദേശങ്ങളിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി തിരിച്ച് വിളിക്കുകയാണെന്ന് ജനറൽ റാവത്ത് പ്രധാനമന്ത്രിയെ അറിയിച്ചു

ശ്രജ്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രാജ്യത്തിനുള്ളിൽ നീന്നും വിദേശത്തു നിന്നും ഓക്സിജൻ എത്തിക്കാനായി ്ഏർപ്പെടുത്തിയ നടപടികൾ പ്രധാനമന്ത്രി വിലയിരുത്തി

വോട്ടെണ്ണൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വാഹനങ്ങളെയും അവശ്യ സർവ്വീസുകളെയും മാത്രമേ ഈ ദിനത്തിൽ അനുവദിക്കാവൂ എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബഞ്ച് നിർദ്ദേശിച്ചു

ഡൽഹിയിൽ ഓക്സിജൻ സൌകര്യത്തോടെയുള്ള ആശുപത്രി കിടക്കകളുടെ എണ്ണം വർദ്ധി പ്പിക്കാൻ നടപടി തുടരുകയാണെന്നും ശ്രീ

രണ്ടായിരം കോടി രൂപ ഇതിനായി ചെലവു വരുമെന്ന് മുഖ്യമന്ത്രി നവീൻ പട്നായിക് അറിയിച്ചു

കോവിഡ് മഹാമാരിയെ ചെറുക്കാനുളള എല്ലാ പ്രതിശ്ര്മങ്ങളും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു

സംസ്ഥാനങ്ങൾ സ്വതന്ത്രമായാണ് വിവരങ്ങൾ നൽകുന്നതെന്നും കേന്ദ്രം ഇതിൽ ഇടപെടുന്നില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു